ഇന്ത്യയിൽ നടന്നു വരികയാണെന്നും ഇപ്പോൾ എല്ലാവരും കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അല്പസമയത്തിനകം തുടക്കമാകും

ഇന്ത്യൻ വനിതകൾ കായിക മേഖലയിലും മറ്റും നേടിയ നേട്ടങ്ങളെ മാർച്ച് മാസത്തിൽ ആഘോഷിച്ച വനിതാദിന്ന്ത്ത് ഉദ്ധരിച്ച് പ്രധാനമന്ത്രി പരമാർശിച്ചു

കേരളത്തിൽ സെന്റ് തേരാസസ് കോളേജിൽ ഇത് സംബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി ഉദാഹരണമായി പറയുകയും പ്രശംസിക്കുകയും ചെയ്തു

മൻകി ബാത്തിനെ വ്വിജ്യകരമാക്കുകയും സമൃദ്ധമാക്കുകയും ചെയ്ത ശ്രോതാക്കൾക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു

രാവിലെ വർക്കലയിൽ റോഡ്ഷോയിൽ പങ്കെടുത്ത അദ്ദേഹം ശിവഗിരിയിലെ മഹാസമാധിമന്ദിരവും സന്ദർശിച്ചു തുടർന്ന് കോട്ടയം എറണാകുളം ഇരിഞ്ഞാലകുട എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പങ്കെടുക്കും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് വൈകീട്ട് കോഴിക്കോട് എലത്തൂരിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും തിരുവനന്തപൂരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തുന്നു സിപിഐ ദേശീയ സെക്രട്ടറിയേറ്റ് അംഗം അമർജിത് കൌർ കൊല്ലം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയാണ്

സി

കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിവിധ യുഡിഎഫ് സമ്മേളനങ്ങളിൽ സംസാരിച്ചു കോൺഗ്രസ് നേതാവ് സൽമാൻഖുർഷിത് സംസ്ഥാനത്ത് ഇന്ന് പ്രചാരണം നടത്തും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് കൊല്ലത്ത് യു ഡി എഫ്ന്റെ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ട്ളിൽ പങ്കെടുക്കും

ഇതോടനുബന്ധിച്ച് വൈകുന്നേരം കണ്ണൂരിൽ സൌഹൃദ ക്രിക്കറ്റ് മത്സരം നടത്തും

ക്രിക്കറ്റ് മത്സരത്തോടനുബന്ധിച്ച് കളിയുടെ ഇടവേളയിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളജിലെ വിദ്യാർഥികൾ അവതരിപ്പിക്കുന്ന ഫ്ളാഷ് മോബും അരങ്ങേറും തലശ്ശേരി കോണോർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും ഇന്ന് വൈകീട്ട് സൌഹൃദ ക്രിക്കറ്റ് മത്സരം നടക്കുന്നുണ്ട്

രണ്ട് കോടി ഇരുപത് ലക്ഷത്തോളം പേർ നിലവിൽ ചികിത്സയിലുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ശ്യാമ

തുടർന്ന് ഐബ്ബുവരി രണ്ടിന് മുൻനിര കോവിഡ് പ്രതിരോധ പ്രവർത്തുകർക്ക് നൽകിത്തുടങ്ങി

കേരളത്തിന് ഇതിനായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈ വർഷത്തെ ഹോളി ആഘോഷങ്ങൾ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു ജനങ്ങൾ കൂട്ടംകൂടുന്ന തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല

പരമ്പരയിൽ ഓരോ ജയം നേടി ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ് അതിനാൽ ഇന്ന് വിജയിക്കുന്ന ടീം പരമ്പര സ്വന്തമാക്കും

വിവിധ സഭാ അധ്യക്ഷന്മാർ പള്ളിക്ളിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി